മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ തുടങ്ങി തെരഞ്ഞെടുപ്പിൽ ബി ജെ

ഡി എഫ് വോട്ടു കച്ചുവടം നടന്നതായി മുഖ്യമുന്തി പിണറായി വിജയൻ

അവശ്യ സേവനങ്ങൾക്ക് തട്സ്സമില്ല പൊതുഗതാഗതം ഉണ്ടാവും

ജി പരീക്ഷ നാല് മാസത്തേക്ക് മാറ്റിവച്ചു

ബാലകൃഷ്ണ പിള്ളയ്ക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി ഭൌതിക ദേഹം ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു

രാജിക്കത്ത് സ്വീകരിച്ച ഗവർണർ പകരം സംവിധാനം ഉണ്ടാകുന്നതുവരെ ചുമതലകൾ നിർവ്വഹിക്കാൻ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചു സർക്കാർ രൂപീകരണം സംബന്ധിച്ച് സി

ഐ എമ്മും എൽ

എഫും ചർച്ച ആരംഭിച്ചിട്ടുണ്ട് നാളെ ചേരുന്ന സി

ഐ എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം വിഷയം ചർച്ച ചെയ്യും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ് കണ്ണൂരിൽ നിന്ന് തലസ്ഥാനത്തെത്തി രാവിലെ വിമാന മാർഗ്ഗമാണ് അദ്ദേഹം എത്തിയത്

എഫിനെതിരെ ഗുരുതര ൂആർരോപണങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അട്ടിമറിക്കാൻ യു ഡി

നിരവധി മീണ്ഡലങ്ങളിൽ ബി ജെ

ഡി എഫിന് വോട്ട് മറിച്ചു നൽകിയെന്ന് ശ്രീ

ആരോപണങ്ങൾ കൊണ്ട് എൽ ഡി എഫിനെ അപകീർത്തിപ്പെടുത്താൻ കഴിയില്ലെന്നതിന് തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലം ജനവികാരം അട്ടിമറിക്കാൻ പോളിംഗ് ദിനം ആഹ്വാനം നട്ന്നതായി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു നിയന്ത്രണം ഇൻട്രോ കോവിഡ് വ്യാപനം രൂക്ഷമായതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നാളെ മുതൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും

ഈ മാസം ഒമ്പത് വരെയാണ് ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് വിശദാംശങ്ങളുമായി സോഫിയ ഡാനിയൽ വോയ്സ് അവശ്യ സർവ്വീസുകൾ ഒഴികെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നാളെ മുതൽ കർശന നിയന്ത്രണമായിരിക്കും

മറ്റ് സ്ഥാപനങ്ങളിൽ അത്യാവശ്യം വേണ്ട ജീവനക്കാർ ്മാത്രമായിരിക്കും ഹാജരാവുക

ടി മേഖലയിൽ പരമാവധി ആളുകൾക്ക് വർക്ക് ഫ്രം ഫോം സൌകര്യം സ്ഥാപനങ്ങൾ ഒരുക്കി നൽകണം

വ്യാപാര കേന്ദ്രങ്ങളിൽ ഹോം ഡെലിവറി പ്രോത്സാഹിപ്പിക്കും റേഷൻ കടകൾ തുറക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണ്

കോഴിക്കോട് എറണാകുളം മലപ്പുറം തൃശൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധ

എല്ലാ സംസ്ഥാനങ്ങൾക്കും സൌജന്യമായാണ് വാക്സിൻ നൽകിയത്

കണ്ണൂർ നിരോധനാജ്ഞ അക്രമ സാധ്യതകൾ കണക്കിലെടുത്ത് കണ്ണൂർ ജില്ലയിലെ ചൊക്സി കൊളവല്ലൂർ ന്യൂമാഹി പാനൂർ പൊലീസ് സ്റ്റേഷൻ പരിധിയിൽ നാളെ അർദ്ധരാത്രി വരെ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പ്രദേശത്ത് സമാധാനം നിലനിർത്താനും കോവിഡ് വ്യാപനം തടയാനുമാണ് സിറ്റി പൊലീസ് കമ്മീഷണറുടെ അഭ്യർത്ഥന പ്രകാരം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത്

വോയ്സ് പ്രധാനമന്തി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്

ഇതിന് പുറമെ കോവിഡ് ചികിത്സയിലെ ആരോഗ്യപ്രി്ടർത്തകരുടെ വിന്യാസം സംബന്ധിച്ചും സുപ്രധാന തൃരുമാറ്നങ്ങൾ യോഗത്തിൽ കൈക്കൊണ്ടു

ഇതിലൂടെ യോഗ്യരായ ഡോക്ടർമാരുടെ സേവനം കോവിഡ് ചികിത്സയ്ക്ക് ഉറപ്പാക്കാൻ സാധിക്കുമെന്നും യോഗം വിലയിരുത്തി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതുവരെ നൽകിയ ഓർഡറിൽ നല്ലൊരു അളവ് വാക്സിനുകൾ ലഭിച്ചു കഴിഞ്ഞു

വാക്സിനുകൾ സംസ്ഥാനങ്ങൾക്ക് സൌജന്യമായി നൽകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി

ബാലകൃഷ്ണപിള്ളയ്ക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി

നിരവധി ബാലകൃഷ്ണപിള്ളയ്ക്ക് അന്തിമോപചാരം പേർ അർപ്പിക്കാനെത്തിയിരുന്നു കൊട്ടാരക്കരയിലെ വസതിയിലും എൻ

പത്തനാപുരം താലൂക്ക് കമ്മിറ്റി ഓഫീസിലും വാളകത്തെ കീഴൂട്ട് തറവാട്ടിലും ഭൌതികദേഹം പൊതുദർശനത്തിന് വച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എൻ

് ജനറൽ സെക്രട്ടറി ജി

പുലർച്ചെ ഏക്റ്ട്ടാരക്കരയിലെ സ്ഥകാര്യ ആശുപത്രിയിലായിരുന്നു ബാലകൃഷ്ണ്പിള്ളയുടെ അന്ത്യം

ഓഫീസ് വയനാട് വയനാട് ജില്ലയിൽ ക്ടോപിഡ് വ്യാപനത്തെ തുടർന്ന് എല്ലാ ആർ ടി ഓഫീ്സുകളിലെയും സബ് ആർ ടി ഓഫീസുകളിലെയും എല്ലാവിധ ഡ്രൈവിംഗ് ടെസ്റ്റുകളും സി

വാക്സിൻ ലഭിക്കുന്ന മുറയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് പുനരാരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു

പൊതുനന്മയ്ക്കായി വിവരങ്ങൾ നൽകുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം വൈവിദ്ധ്യവും സ്വതന്ത്രവും സുതാര്യവുമായ മാധ്യമ സംസ്ക്കാരം വളർത്താൻ അംഗരാജൃങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് കഴിയണമെന്ന് ഐകൃരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആഹാനം ചെയ്തു

അദീല അബ്ദുള്ള നിർദേശം നൽകി

ഈ കാലയളവിൽ സേവനങ്ങൾ ഓൺലൈനായി മാത്രമേ ലഭ്യമാവുകയുള്ളൂ സർവകലാശാലയിൽ നിന്നും ഓൺലൈനായി ലഭ്യമാകാത്ത സേവനങ്ങൾക്കായി അപേക്ഷകൾ ഇമെയിൽ മുഖേന അയയ്ക്കാവുന്നതാണ്

എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരും തമ്മിൽ ഇന്ന് നടക്കേണ്ട മത്സരം മാറ്റിവച്ചു കൊൽക്കത്തയുടെ രണ്ട് കളിക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് തീരുമാനം